എസ്

കേന്ദ്രധനമന്ത്രാലയം തള്ളി

വന്ദേഭാരത് ദൌതൃത്തിന്റെ ഭാഗമാിയി ഇന്നലെ കേരളത്തിലെത്തിയത് അഞ്ച് ഗ്ലീമാന്നങ്ങൾ

കൃത്യമായ നടപടിക്ളിലൂടെ രാജ്യത്തെ കോവിഡ് വ്യാപനവും മരണസംഖൃയും കുറയ്ക്കാനായെന്ന് കേന്ദ്ര സർക്കാർ

ഇസ്താം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു ഇന്നത്തെ സമ്പൂർണ ലോക്ഡൌണിൽ ഇളവ്

കോവിഡ് മഹാമാരി സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഇത്തരം ഒരു സെസ് കേന്ദ്രസർക്കാർ ഏർപ്പെടുത്തുമെന്ന തരത്തിൽ മാധ്യമവാർത്തകൾ പ്രചരിച്ചിരുന്നു

ഇത്തരത്തിൽ സെസ് ഏർപ്പെടുത്തുന്നത് ഉപഭോക്താക്കൾക്ക് അഅധികഭാരമായി മാറാൻ സാധ്യതയുണ്ടെന്ന് മന്ത്രാലയം വിലയിരുത്തി

ജെ പി വക്താവുമായി സാമൂഹ്യമാധൃമുത്തിൽ ആശയവിനിമയം നടത്തവെയാണ് ധനമന്ത്രി ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് പാക്കേജിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് പല മേഖലകളും ഏറെ നാളായി നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളും പാക്കേജിന്റെ ഭാഗമായി പരിഹരിക്കാനായി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിന് നിലവിലെ സാഹചരൃത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് റിസർവ് ബാങ്ക് സ്വീകരിച്ചതെന്നും ശ്രീമതി നിർമല സീതാരാമൻ അറിയിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നൌത്ത് നടത്തിയ ടെലഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രതിസന്ധി കാലത്ത് മൌറീഷ്യസ് ജനതയോടൊപ്പം ഇന്ത്യ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സാഗറിന്റെ ഭാഗമായി മൌറീഷ്യസിൽ കൂടുങ്ങിയ ഇന്ത്യാക്കാരെ നാട്ടിലെത്തിച്ചതിനും ശ്രീ

ശ്രീല്ക്കുയ്ക്കുള്ള എല്ലാ പിന്തുണയും തുടരുമെന്നും ശ്രീ നരേന്ദ്രമോദി ശ്രീല്ക്കൻ പ്രസിഡന്റിന് ഉറപ്പു നൽകി

വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്നലെ ഏഴ് വിമാനങ്ങളിലാണ് പ്രവാസികൾ നാട്ടിലെത്തിയത്

എ ഇ യിൽ നിന്ന് നാലും ഒമാനിൽ നിന്ന് മൂന്നും വിമാനങ്ങളാണ് ഇന്നലെ രാത്രി വിവിധ നഗരങ്ങളിലെത്തിയത്

മസ്ക്കറ്റ് റിയാദ് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ എത്തിയത് ആരോഗ്യപരിശോധനക്കും മറ്റ് നടപടിക്രമങ്ങൾക്കും ശേഷം യാത്രക്കാരെ കാറന്റൈൻ കേന്ദ്രങ്ങളിലേക്കും വീടുകളിലേക്കും അയച്ചു നാളെ സാൻഫ്രാൻസിസ്കോ മെൽബൺ എന്നിവിടങ്ങളിൽനിന്നും വിമാനങ്ങൾ കൊച്ചിയിൽ എത്തിച്ചേരും

ഇതിനായി എല്ലാ വിമാനത്താവളങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ അരവിന്ദ് സിംഗ് അറിയിച്ചു കോവിഡ് പ്രതിരോധ മാർഗനിർദേശങ്ങൾ പൂർണമായി പാലിച്ചായിരിക്കും യാത്രക്കാരെ വിമാനത്താവളങ്ങളിൽ എത്തിക്കുന്നത്

എന്നാൽ സംസ്ഥാനത്ത് കോവിഡ് സമൂഹവ്യാപനം ഇല്ലെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി അറിയിച്ചു

സംസ്ഥാനഭരണകൂടങ്ങളുടെ ആവശ്യപ്രകാരമായിരിക്കും ഇത് ഇൌ മാസം ഒന്ന് മുതലാണ് ശ്രമിക്ക് സ്പെഷ്യൽ ട്രെയിനുകളുടെ സേവനം ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത്

യാത്രക്കാരുടെ പട്ടികയും വിശദവിവരങ്ങളും ഇതോടൊപ്പം ലഭ്യമാക്കണമെന്നും റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയലിന് അയച്ച ഇ മെയിൽ സന്ദേശത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടവും പൊലിമയും ഒഴിവാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്വർ ആഘോഷിക്കുന്നത്

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പ്രതിപക്ഷനേതാവ് എന്നിവർ ഈദ് ആശംസകൾ നേർന്നു

ബേക്കറി വസ്ത്രക്കടകൾ മിഠായിക്കടകൾ ഫാൻസി സ്റ്റോറുകൾ ചെരിപ്പുകടകൾ എന്നിവ രാവിലെ ഏഴുമുതൽ വൈകുന്നേരം ഏഴുമണിവരെ തുറക്കാം

ബന്ധുവീടുകൾ സന്ദർശിക്കാൻ വാഹനങ്ങളിൽ അന്തർജില്ലാ യാത്രകൾ നടത്താം

എസ് എൽ സി

ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് വിശദമായ മാർഗനിർദേശങ്ങൾ പുറപ്പെടുവിച്ചതായി മന്ത്രി കെ

വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദേശ പ്രകാരം എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ശിപാർശകൾ കൂടി പരിഗണിച്ചാണ് പരീക്ഷാ നടത്തിപ്പിനും സ്വീകരിക്കേണ്ട മുൻകരുതലുകളും സംബന്ധിച്ചുള്ള മാർഗ നിർദേശങ്ങൾ പുറത്തിറക്കിയത്

പിമാരുടെയും എം എൽ എ മാരുടെയും സംയുക്ത യോഗം വിളിച്ചു

കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ തന്റെ ജൻമദിനത്തിന് പ്രസക്തിയൊന്നും ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു